ഇത് സംബന്ധിച്ച പ്രമേയം ആഭ്യന്തരമന്ത്രി ് അമിത് ഷായാണ് രാജ്യസഭയിൽ അറിയിച്ചത് പ്രഖ്യാപനത്തെ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ ബഹളമുണ്ടാക്കി കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

ജമ്മുവും കാശ്മീരും കേന്ദ്ര ഭരണ പ്രദേശമാകുകിയും ലഡാക്ക് ഭരണകൂടരഹിത കേന്ദ്രഭരണ പ്രദേശമാകുന്നത്തുമാണ് ബില്ല് സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്ക്ക് ന്റിൽക്കുന്ന മുന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം ന്റൽകുന്ന ജമ്മു കാശ്മീർ സംവരണ ബില്ലും ശ്രീ

ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് രാജ്യത്ത് നടപ്പിലാക്കുന്ന് പദ്ധതികളുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ലെന്നും രാഷ്ട്രീയക്കാർ അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് അവലംബിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു

സാഹചര്യം മാറി വന്നതനുസരിച്ച് ഈ നിയമം നേരത്തെ റദ്ദാക്കേണ്ടതായിരുന്നു എന്നാൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും അതിനുള്ള ആർജ്ജവം കാട്ടിയില്ലെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു

ഡി

അംഗം രവീന്ദ്രകുമാർ ബില്ലിനെ അനുകൂലിച്ചു ജമ്മു കാശ്മീരിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വികസനത്തിനും ബിൽ കാരണമാകുമെന്ന് ശ്രീ

ബിൽ കാശ്മീർ താഴ്വരയിൽ സമാധാനം കൊണ്ടുവരുമെന്ന് ആം ആദ്മി പാർട്ടിയുടെ സുശീൽകുമാർ ഗുപ്ത പറഞ്ഞു ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് ബില്ലിനെ എതിർത്ത് തൃണമൂൽ കോൺഗ്രസംഗം ഒബ്രയൻ സഭയിൽ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ അഭാവത്തിൽ ഇത്ര ധൃതിപ്പെട്ട് ബില്ല് കൊണ്ടുവരേണ്ടിയിരുന്നോ എന്ന് ഡി

എ ഗവൺമെന്റ് ബില്ലിലൂടെ ഭിന്നിപ്പിച്ചതെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് ആരോപിച്ചു സമാജ് വാദി പാർട്ടി അംഗം പ്രൊഫസർ രാംഗോപാൽ യാദവും ഗവൺമെന്റ് തീരുമാനത്തെ ചോദ്യം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ ക്രമൻമാധ്ാനം നിലനിർത്താൻ എല്ലാ ശ്രമങ്ങളും ഉറപ്പാക്കണമെന്ന് ്ആഭൂന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു

ജമ്മു കാശ്മീർ നിവാസ്ത്രികൾക്ക് പ്രത്യേകിച്ച് മറ്റിടങ്ങളിൽ കഴിയുന്ന കാശ്മീർ സ്വദേശിക്ളായ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശം ഉണ്ട്

സംസ്ഥാനത്തിലെ സെക്രട്ടേറിയറ്റ് നിയമസഭയായി മാറും സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശാനുസരണം ഗവർണർ സംസ്ഥാന ഭരണം നിർവ്വഹിക്കും

ഡി

അംഗങ്ങളായ മിർഫയാസ് നസീർ അഹമ്മദ് ലാവെ എന്നിവരോട് സഭയ്ക്കു പുറത്തു പോകാൻ രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു

അതേസമയം കോൺഗ്രസ് എം

ഭരണഘടനയെ ഏതു നിലയിലും സംരക്ഷിക്കുമെന്നും ബി ജെ

ഇന്ന് ഭരണഘടനയെ കൊലചെയ്യുകയാണുണ്ടാടുയതെന്നും ശ്രീ

എന്നാൽ ജമ്മു മേഖലയിലുട്ടു ജിമ്മു ആന്റ് കാശ്മീരിലും ജനജീവിതം ശാന്തമായി തുടരുന്നു പ്രപ്പതികൂലമായ യാതൊരു സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലു മുൻകരുതൽ എന്ന നിലയിൽ കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ്ട് മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജമ്മുവിലേയും കിഷ്താർ റിയാസി ദോഡ ഉധംപൂർ ജില്ലയിലെ എല്ലാട്ട്വ്വിദ്ട്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടു

അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ സേനയെ ജമ്മു മേഖലയിലുടനീളം വിന്യസിച്ചിട്ടുണ്ട് ഗവൺമെന്റ് തീരുമാനത്തെ ബി ജെ

തങ്ങളുടെ ഇത്രയും നാളത്തെ വേദന കുറച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയോട് നന്ദി പ്രകടിപ്പിക്കുന്നതായി ബി ജെ

പ്രസ്താവിച്ചു

മഴയുടെ സാധൃത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു

തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെളളപൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിദുരന്തങ്ങൾക്കു സാധ്യത വർധിക്കുമെന്നും അധികൃതർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം അറിയിച്ചിട്ടുണ്ട്

പണസമ്പാദനത്തിന് മാത്രമായി ഗർഭപാത്രം നൽകുന്നത് നിയമത്തിൽ നിരോധിച്ചിട്ടുണ്ട് നിസ്വാർത്ഥമായി മറ്റൊരാളെ സഹായിക്കുന്നതിനായി മാത്രമേ അനുവാദം നൽകുന്നുള്ളു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവശേഷം അവർക്ക് നൽകുന്നതാണ് പ്രക്രിയയാണ് വാടക ഗർഭധാരണം ഈ പ്രവൃത്തി ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിനാലാണ് നിയമനിർമ്മാണം നടത്തിയതെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

ഈ മേഖലയിലെ ചൂഷണത്തിന് തടയിടാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി വൃക്തമാക്കി

ട്രാൻസ് ജെൻഡറുകളോടുള്ള വിവേചനം തടയുന്നതാണ് ബില്ലെന്ന് സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി കിഷൻപാൽ ഗൂർജാർ പറഞ്ഞു വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യസുരക്ഷ ഉപഭോഗവസ്തുക്കൾ സൌകര്യങ്ങൾ അവസരങ്ങൾ തുടങ്ങിയവ നിഷേധിക്കുന്നത് തടയുന്നതും ബില്ലിൽ വൃവസ്ഥ ചെയ്യുന്നു

ട്രാൻസ് ജെൻഡറുകളുടെ നിർവ്വചനവും ബില്ലിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് എല്ലാ ട്രാൻസ്ജെൻഡർ വൃക്തികൾക്കും കുടുംബജീവിതം നയിക്കാനുള്ള അവകാശവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ഈ സമൂഹം ആവശ്യപ്പെട്ട ഒട്ടുമിക്ക ആവശ്യങ്ങളും ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ബി ജെ

അംഗം മനോജ് തിവാരി പറഞ്ഞു ഇവരോടുള്ള ജനങ്ങളുടെ മനോഭാവം മാറേണ്ടത് ആവശ്യമാണെന്നും ശ്രീ

ട്രാൻസ് ജെൻഡറുകളോടുള്ള വിവേചനവും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും ബില്ലിലുണ്ടെന്ന് ശിവസേനാ അംഗം വിനായക് റൌട്ട് പറഞ്ഞു

ഇരയായ പെൺകുട്ടിക്കും കുടുംബത്തിനും നേരെയുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് സെങ്ഗറിനും മറ്റ് ഒമ്പത് പേർക്കുമെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് അപകടത്തിൽ പെൺകുട്ടിക്കും അഭിഭാഷകനും ഗുരുതരമായ പരിക്കേൽക്കുകയും രണ്ട് അമ്മായിമാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്

അധികാരമേറ്റ ശേഷമുള്ള കേന്ദ്രമന്ത്രിയുടെ ആദ്യ ചൈനാ സന്ദർശനമാണിത്

ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യി യുമായി പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും

ഗവൺമെന്റ് ഫണ്ടിൽ അഴിമതി കാണിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അദീബ് നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അറസ്റ്റ് ഇന്ത്യ പ്രവേശനാനുമതി നിഷേധിച്ചിരുന്നു